പരിഷ്ക്കരിച്ച പതിപ്പ് അടിസ്ഥാനമാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് സംസ്ഥാന തെരുണ്ഞെടുപ്പ് കമ്മീഷണർ വി

തുടർന്നുണ്ടായ പൊടിശല്യം നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്ഥീകരിക്കണമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് റി തിരക്കിൽ അമർന്നു് സ്ന്നിധാനം ന് മകരസംക്രമ പൂജ്ക്ക്ൾക്ക് ഒരുങ്ങി ശബരിമല

പിപിധ ഉൽപ്പന്നങ്ങൾ ഇനി മുതൽ സപ്ലൈകോ വിപണനകേന്ദ്രങ്ങളിലൂടെ വാങ്ങാം

കാർ പാഞ്ഞുകയറി കാൽനട യാത്രക്കാരായ നാലു പേർ മരിച്ചു

പി ടി ഉമ്മർകോയ കോഴിക്കോട് നിര്യാതനായി

അതത് കാലത്ത് ഗൃഹസന്ദർശനം നടത്തി സമഗ്രമാക്കി പുതുക്കിയ വോട്ടർപട്ടികയാണിതെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു

പൊടി നിയന്ത്രിക്കാൻ വെള്ളം ചീറ്റിക്കണമെന്ന് ബോർഡ് നഗരസഭയോട് നിർദ്ദേശിച്ചു

മകരസംക്രമം നാളെ പുലർച്ചെ ആയതിനാൽ ശബരിമല ക്ഷേത്രനട ഇന്ന് മുഴുവൻ തുറന്നിരിക്കും

ഈ സമയത്ത് ശബരിമലയിൽ മകരസംക്രമപൂജയും അഭിഷേകവും നടക്കും

മകരവിളക്കിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര നാളെ വൈകിട്ട് ശരംകുത്തിയിൽ എത്തും മകരജ്യോതി ദർശനത്തിന് തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ സന്നാഹങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് രണ്ടു ദിവസമായി ഭക്തരുടെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്

അഷ്ടമുടിക്കായലിലെ മത്സൃസമ്പത്ത് പുന്നരുജ്ജീവിപ്പിച്ച് മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക്ട്സ്ട്രാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ഫിഷറ്റീസ് പ്രകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത് തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളത്ത് ഉദ്ഘാടനവും മത്സ്യവിത്ത് മ്യ്ക്ഷേപവും വൈകിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാധാമണി നിർവഹിക്കും

മത്സ്യതൊഴിലാളി വനിതകൾക്ക് മൈക്രോ സംരഭങ്ങൾ തുടങ്ങാൻ നൽകുന്ന വായ്പ തുക വർധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹും ആലപ്പുഴയിൽ പറഞ്ഞു

പൌരത്വ നിയമ ഭേദഗതിയ്ക്കെതിരായ പ്രമേയം നേരത്തെ കേരള നിയമസഭയിൽ പാസാക്കിയിരുന്നു

എൻ ഇ പി ദുരന്തനിവാരണ വിഭാഗം തലവൻ മുരളി തുമ്മാരുകുടിയാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്

കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തിലധികം സ്കൂൾ വിദ്യാർത്ഥികൾക്കും തൂവാല വിതരണം ചെയ്തു

മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ ധനസഹായത്തിനുള്ള അപേക്ഷയുടെ സ്ഥിതിയും ഈ നമ്പറിലൂടെ അറിയാൻ സാധിക്കും

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ രവികുമാർ

ഒരാൾക്ക് ഗുരുതര പരിക്ക്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 തുമ്പൂർ അയ്യപ്പൻകാവ് ഉത്സവം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇവർ ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടം ഉമ്മർകോയ ലോക ചെസ് ഫെഡറേഷൻ മുൻ വൈസ് പ്രസിഡന്റ് പി

ദേശീയ അന്തർദേശീയ ചാംപ്യൻഷിപ്പുകളുടെ സംഘാടനത്തിന് നേതൃത്വം നല്കി കോഴിക്കോടിനെ ചെസ്സ് കേന്ദ്രമാക്കി മാറ്റിയത് അദ്ദേഹമായിരുന്നു ദേശീയ ചാമ്പ്യൻഷിപ്പുകളും ലോക ജൂനിയർ ചാംപ്യൻഷിപ്പുകളും സംഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഉമ്മർകോയയുടെ നിര്യാണം ഇന്ത്യയുടെ ചെസ് മേഖലക്ക് വലിയ നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകൾക്കാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത്

മന്ത്രി ഇ പി ജയരാജൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും

ഡി മെഡിക്കൽ കോളേജിലെ നാല് പി

മൈക്രോ ബയോളജി ക്യാൻസർ രോഗ ചികിത്സ ശ്വാസകോശവിഭാഗം ബയോകെമിസ്ട്രി വിഭാഗത്തിലാണ് പി

ഭൂഗർഭ കേബിൾ പവർഗ്രിഡ് കോർപ്പറേഷൻ ഭൂക്കൂർഭു കേബിൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ കുതിരാന്നിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും